ഒഡീഷയിലെ ബി

പ്പി് ലാഡു കിഷോർ സ്വൈൻ അന്തരിച്ചു ബഹുമാന്റാർത്ഥം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

സുപ്രീംകോടതി പരിഗണിക്കുന്നു

കേരളത്തിലെ കയർ മേഖലയുടെ പ്രതിസന്ധി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി

ഡി

ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു പൌരത്വ ഭേദഗതി ബിൽ സർവ്വകലാശാലകളിലെ നിയമനം എന്നീ വിഷയങ്ങളാണ് അംഗങ്ങൾ ഉന്നയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

എസ് പി ആർ

ഡി

പിഐ അംഗങ്ങൾ സർവ്വകലാശാലകളിലെ നിയമനം ഉന്നയിച്ചപ്പോൾ റ്റി ഡി

അംഗങ്ങൾ ആന്ധാപ്രദേശിന് പ്രത്യേക പദവി എന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചത് ഇതേ വിഷയങ്ങൾ പ്രതിപക്ഷം രാജ്യസഭയ്ക്കകത്തും ഉന്നയിച്ചു

സ്ർവ്വകലാശാലകളിലും കോളേജുകളിലും നിയമനം നടത്തുന്നതിന് പുതിയ സംവിധാനം ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി ബിഎസ്പി ആർ

അടിയന്തിര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡു സഭ രണ്ട് മണി വരെ നിർത്തിവയ്ക്കുകയാണെന്ന് അറിയിച്ചു ഒഡീഷ എം

ഒഡീഷയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നു ചികിത്സയിലായിരുന്നു ലാഡു കിഷോർ രോഗം മൂർച്ചിച്ചതിനെ തുടർന്നു ചൊവ്വാഴ്ച അദ്ദേഹത്തെ ഭൂവനേശ്വറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു

അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി

രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ് നടക്കുക

ഇതിന് പുറമെ പാരാദീപ് തുറമുഖം സന്ദർശിക്കുന്ന ശ്രീ

എസ്പി റാങ്കിലുള്ള തഥാഗത ബർധന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സിബിഐ സംഘമാണ് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത്

പി പോലീസ് മുൻ ഡയറക്ടർ ജനറൽ അതുലിന്റെ നേതൃത്വത്തിലുള്ള നാല്റ്ഗ സംഘമായിരിക്കും നടത്തുക

തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സംഘടനയുടേതെന്ന് ആഭ്യന്തരമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു

പാകിസ്ഥാൻ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി ഫവാദ് ഹസനാണ് ഇന്ത്യയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് കശ്മീർ വിഷയത്തിൽ ഇസ്താമാബാദിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കവെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ക്ഷണം കശ്മീരിലേത് ഭീകരവാദം എന്നതിലുപരി മനുഷ്യാവകാശ പ്രശ്നമായി ഇന്ത്യ പരിഗണിക്കണമെന്നും ശ്രീ ഫവാദ്ഹസൻ ആവശ്യപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

വാർത്താ വിനിമയ സംവിധാനങ്ങൾ തടസ്സം കൂടാതെ തുടരാൻ ജി

ആർ

സാറ്റ് ശൃംഖല ടെലിവിഷൻ സംപ്രേഷണം ഡിജിറ്റൽ വാർത്താ ശേഖരണം ഡി

ഫണ്ട് ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഈ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു ദേശീയ താൽപ്പര്യം മുൻനിർത്തി ചട്ടങ്ങൾ പ്രകാരം മാത്രമേ വിദേശത്ത് നിന്ന് പണം ശേഖരിക്കാവൂ എന്നാണ് നിയമം

കഴിഞ്ഞ വർഷം സിംഗപ്പൂരിൽ വെച്ചും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ബന്ധപ്പെട്ട വിധി പുനപരിശോധിക്ക്യ്ണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് വാദം ആരംഭിച്ചത് പൊതുസ്ഥലങ്ങളിലെ തുല്യാവ്കാ്ശ് ആരാധനാലയങ്ങൾക്ക് ബാധകമല്ലെന്ന് എൻ

ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി ശബരിമലയിൽ പ്രത്യേക സങ്കൽപ്പം ഉണ്ടെന്ന വാദം ഉന്നയിച്ചു വിശ്വാസം തീരുമാനിക്കാൻ വിശ്വാസികൾക്കാണ് അവകാശമെന്ന് ബ്രാഹ്മണ സഭയും വാദിച്ചു

ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തരപ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു സംസ്ഥാനത്തെ കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ വർഷത്തോടെ പരിഹാരമാവുമെന്ന് മന്ത്രി ഡോ

ചകിരിച്ചോറിൽ നിന്ന് പലക ഉല്പാദിപ്പിക്കാൻ നടപടികൾ ആരംഭിക്കും ഗവൺമെന്റ് ഇൌ മേഖലയുടെ പുനരുദ്ധാരണത്തിന് നിട്ടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി കയർ ഉല്പാദനം മൂന്ന് ലക്ഷം ക്കിന്റൽ ആയി വർദ്ധിച്ചു

പ്രമേയത്തിന് അനുമതി തേടിയത്

രണ്ടു മത്സരങ്ങളിൽ നിന്ന് കേരളത്തിന് രണ്ടു പോയിന്റ് മാത്രമാണുള്ളത്

ഈ മത്സരത്തിലെ പ്രകടനത്തോടെ കേരളം പുറത്താവുന്ന സ്ഥിതിയാലാണ്